രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്ര മോദിക്കെതിരായ പരാമർശത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി നിരുപാധികം മാപ്പ് പറഞ്ഞു

തന്റെ മാപ്പപേക്ഷ സ്വീകരിച്ച് കോടതി അലക്ഷ്യ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് ശ്രീ രാഹുൽ ഗാന്ധി മാപ്പപേക്ഷയിൽ അഭ്യത്ഥിച്ചു

കേസിൽ നേരത്തെ രാഹുൽ ഖേദം പ്രകടിപ്പിച്ചിരുന്നെങ്കിലും കോടതി അംഗീകരിച്ചിരുന്നില്ല

ജെ

നേതാവ് മീനാക്ഷി ലേഖിയാണ് രാഹുലിനെതിരെ കോടതി അലക്ഷ്യ ഹർജി നൽകിയത്

തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ വിദ്യാഭ്യാസ സെക്രട്ടറിയാണ് തിരുവനന്തപുരത്ത് ഫലപ്രഖ്യാപനം നടത്തിയത്

വിജയശതമാനം ഏറ്റവും കൂടിയ ജില്ല കോഴിക്കോടും കുറഞ്ഞ ജില്ല പത്തനംതിട്ടയുമാണ്

രാജ്യത്തെ ആധുനിക നിയമ വിദ്യാഭ്യാസത്തിന് മാധവമേനോൻ നൽകിയ സംഭാവന വിലമതിക്കാനാവാത്തതാണെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു

എല്ലിൽ ഇന്ന് നട്ക്കുന്ന എലിമിനേറ്റർ മത്സരത്തിൽ ഡൽഹി ക്യാപ്പിറ്റൽസ് സൺ റൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും

ഇന്നലെ നടന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിംഗ്സിനെ ആറ് വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് മുംബൈ ഇന്ത്യൻസ് ഐ

എൽ